പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുമായി ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തി ഇരു രാജൃങ്ങളും ഏഴ് കരാറുകളിൽ ഒപ്പൂവച്ചു

ഹരിയാന നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പ്രിശോധന നടന്നു

വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് ബംഗ്ലാദേശിൽ നടപ്പാക്കുന്ന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് കൂടുതൽ വിവരങ്ങളുമായി വിനോദ് കുമാർ വോയ്സ് ബംഗ്ലാദേശിൽ നിന്നും ഉയർന്നതോതിൽ എൽ

ജി

ധാക്കയിൽ രാമകൃഷ്ണ മിഷനിലെ വിവേകാനന്ദ ഭവനം ബംഗ്ലാദേശ് ഇന്ത്യ നൈപുണ്യ വികസന കേന്ദ്രം തുടങ്ങിയവയാണ് മറ്റ് പദ്ധതികൾ

ഹൈദരാബാദ് ഹൌസിൽ പ്രധാനിമ്ര്ന്തി ഷെയ്ഖ് ഹസീനയും ശ്രീ

ഇപ്പോൾ ഒപ്പുവെയ്ക്കപ്പെട്ട കരാറുകൾ സാധാരണ ജനങ്ങളുടെ അഭിവൃദ്ധി ലക്ഷ്യമിട്ടുള്ളതാണെന്ന് ശ്രീ

രാമകൃഷ്ണ മിഷനിലെ വിവേകാനന്ദ ഭവൻ നൂറിലധികം സർവ്വകലാശാല പിദ്യാർത്ഥികൾക്ക് ഉതകുമെന്നും അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ നിടന്ന് ചർച്ചകൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുത്താൻ കൂടുതൽ സഹായകരമാകുമെന്നും ശ്രീ

അതേസമയം നൈപുണ്യ വികസന കേന്ദ്രം വിവേകാനന്ദ ഭവൻ തുടങ്ങിയവയ്ക്ക് സാമ്പത്തിക സഹായം നൽകാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തിന് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന നന്ദി അറിയിച്ചു നേരത്തെ വിദേശകാര്യമന്ത്രി എസ് ജയ്ശങ്കറും ബംഗ്ലാദേശ് സംഘത്തെ സന്ദർശിച്ച് ചർച്ച നടത്തി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനെയും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി സന്ദർശിക്കും ന്യൂസ് ഡെസ്ക് ആകാശവാണി

രാജ്യ പുരോഗതിക്കായി കാര്യക്ഷമവും നീതിയുക്തവും കൃത്യതയുള്ളതുമായ കോർപ്പറേറ്റ് ഭരണസംവിധാനം അത്യന്താപേക്ഷിതമാണെന്നും ഇതിനായി കമ്പനി സെക്രട്ടറിമാർ സുപ്രധാനമായ ഉത്തരവാദിത്തമാണ് നിർവഹിക്കുന്നതെന്നും രാഷ്ട്രപതി പറഞ്ഞു

ഇരു സംസ്ഥാനങ്ങളിലും നാമനിർദ്ദേശ പത്രിക സ്മർപ്പിക്കാനുള്ള സമയപരിധി ഇന്നലെ അവസാനിച്ചിരുന്നു സ്ഥാനാർത്ഥീകൾക്ക് തിങ്കളാഴ്ച വരെ പത്രിക പിൻവലിക്കാനാകും

കോൺഗ്രസ് നിരവധി പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നതെന്നും രാഷ്ട്രീയ എതിരാളികളിൽ നിന്നല്ല പാർട്ടിക്കുളളിലെ വിരുദ്ധ നിലപാടുകളാണ് പ്രതിസന്ധിക്ക് കാരണമെന്നും കോൺഗ്രസ് അദ്ധ്യക്ഷ സോണിയാ ഗാന്ധിയ്ക്കയച്ച രാജിക്കത്തിൽ ശ്രീ തൻവാർ വ്യക്തമാക്കി അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന് കോൺഗ്രസ് വൃതിചലിച്ചതായും ഫ്യൂഡൽ ചിന്താഗതി പാർട്ടിയിൽ ബലപ്പെടുന്നതായും അദ്ദേഹം ആരോപിച്ചു സോണിയാഗാന്ധിയുടെ ് വസതിക്ക് മുന്നിൽ തൻവാദിനെ അനുകൂലിക്കുന്നവരുടെ പ്രതിഷേധത്തിനു ശേഷമായിരുന്നു രാജി പ്രഖ്യാപനം

പാർട്ടി വക്താവ് രവീന്ദർ ശർമ്മ ജമ്മുവിൽ അറിയിച്ചതാണ് ഇക്കാര്യം ജനാധിപത്യത്തിനും രാജ്യതാൽപ്പര്യത്തിനു വേണ്ടിയാണ് തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു

നിശ്ചിത സമയത്തിനുള്ളിൽ ദുരിതാശ്വാസം സംബന്ധിച്ചും റവന്യു ദ് രേഖകൾ സംബന്ധിച്ചുമുള്ള കേസുകൾ തീർപ്പാക്കാനും ജനങ്ങൾക്ക് ഫലപ്രദമായ സേവനം ലഭ്യമാക്കാനും ആപ്പിലൂടെ സാധിക്കുമെന്ന് ഡെപ്യൂട്ടി കമ്മീഷണർ ആകാശവാണിയോട് പറഞ്ഞു

ഇന്ന് അഞ്ച് പേരുടെ മൃതദേഹം കൂടി കണ്ടെടുത്തു പശ്ചിമബംഗാളിലെ മാൽഡ ജില്ലയിലെ ചഞ്ചൽ പ്രദേശത്തുനിന്നും നാലു പുരുഷൻമാരുടെ മൃതദേഹം ലഭിച്ചതായി മാൽഡ പോലീസ് സൂപ്രണ്ട് അറിയിച്ചു ദേശീയ സംസ്ഥാന ദുരന്ത പ്രതികരണ സേനാംഗങ്ങൾ തെരച്ചിൽ തുടരുന്നുണ്ട്

ബീഹാറിലെ വാജിദ്പ്പൂർ ഗ്രാമവാസികളാണ് അപകടത്തിൽപ്പെട്ടത്

യോഗത്തിൽ പതിനായിരം കോടി രൂപയുടെ നിക്ഷേപം നടത്താൻ പ്രവാസി നിക്ഷേപകർ സന്നദ്ധത അറിയിച്ചതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു ഡിസംബറിൽ കൊച്ചിയിൽ നടക്കുന്ന ആഗോള നിക്ഷേപക സംഗമത്തിൽ കരാർ ഒപ്പിടും

മിസോറാമിന്റെ തലസ്ഥാനമായ ഐസ്വാളിൽ വ്ടക്കു കിഴക്കൻ കൈത്തറി കരകൌശല പ്രദർശനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മിസോറാം ഉൾപ്പെടെയുള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ തൊഴിൽ അവസരങ്ങളിൽ കൈത്തറി കരകൌശല മേഖലയ്ക്ക് സുപ്രധാന പങ്കാണുള്ളതെന്നും ഈ പ്രദേശങ്ങളുടെ വളർച്ചയ്ക്കായി കൈത്തറിക്ക് വലിയ പങ്ക് വഹിക്കാനാകുമെന്നും ശ്രീ അമിത് ഷാ പറഞ്ഞു

ഇതിനെതിരെ ചില പരിസ്ഥിതി സംഘടനകൾ ഇന്നലെ നൽകിയ ഹർജിയും കോടതി നിരാകരിച്ചിരുന്നു അതിനെ തുടർന്നാണ് ഇന്ന് വീണ്ടും ചില പരിസ്ഥിതി സംഘടനകൾ ഹർജി നൽകിയത്

എന്നാൽ പ്രദേശത്ത് പരിസ്ഥിതി പ്രവർത്തകരുടെ വൻ പ്രതിഷേധം നിലനിൽക്കുകയാണ്

ടിയും വഴിതെളിച്ചുവെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കൂടുതൽ വിവരങ്ങളുമായി വിനോദ് കുമാർ വോയ്സ് നികുതിയെ ഭാരമായിട്ടല്ല രാജ്യനിർമ്മാണ്ത്തിനുളള പങ്കാണെന്ന ബോധം ജനങ്ങളിൽ ഉണ്ടാക്കണമെന്ന് ധർവാഡിൽ ദേശീയ ടാക്സ് പ്രാക്ടീഷ്ണേഴ്സ് ദിനത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ശ്രീമതി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു

രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ പങ്കാളികളാകാൻ വരുമാനത്തിന്റെയും സ്വത്തുക്കളുടേയും സത്യസന്ധമായ വിവരങ്ങൾ നൽകണമെന്നും അതിലൂടെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താൻ നികുതിദായകർ തയ്യാറാകണമെന്നും കേന്ദ്രമന്ത്രി ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ജെ

സംസ്ഥാനത്ത് പ്രളയത്തിൽ വീട് തകർന്നവർക്കായി ഇതാദ്യമായാണ് അഞ്ച് ലക്ഷം രൂപ ധനസഹായം നൽകുന്നതെന്നും അദ്ദേഹം ബംഗളൂരുവിൽ മാധ്യമങ്ങളോട് പറഞ്ഞു നാലു ലക്ഷം ദുരിത ബാധിതർക്ക് അവരുടെ ബാങ്ക് അക്കൌണ്ടുകളിൽ നേരിട്ട് ധനസഹായം കൈമാറി

സമൂഹത്തിനായി തദ്ദേശീയ മെഡിക്കൽ ഉപകരണ വൃവസായം തന്നെ സൃഷ്ടിക്കാനാവുമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂഡൽഹിയിൽ മെഡിക്കൽ ഉപകരണ വ്യവസ്ഥ സംബന്ധിച്ച സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ വിനോദ് പ്പോൾ

ഉത്സവ സമയമായതിനാൽ സമരം പിൻവലിക്കാനായി സംസ്ഥാന ഗവൺമെന്റ് നടത്തിയ ശ്രമങ്ങളൊന്നും ഫലം കണ്ടില്ല

ഇന്ന് വൈകിട്ടോടെ തിരികെ ജോലിയിൽ പ്രവേശിച്ചില്ലെങ്കിൽ എല്ലാവരേയും പിരിച്ചുവിടുമെന്ന് ഗവൺമെന്റ് മുന്നറിയിപ്പ് ന്ൽകി